ത കേരളത്തിലെ ആദ്യ സോളാർ പാർക്ക് കാസർകോട് അമ്പലത്തറയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ത കൺസ്യൂമർ ഫെഡ്ഡിന്റെ ത്രിവേണി ബ്രാൻഡ് ഉല്പന്നങ്ങൾ ഇന്ന് വിപണിയിൽ ഇറക്കും

വിയോഗത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു എട്ട് പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ ജനങ്ങളുടെ ആത്മാവിൽ ശുദ്ധ സംഗീതം നിറച്ച ആലാപന ശൈലിയായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൽ കാലാതീതമായ ശ്രേഷ്ഠ മുദ്രകൾ പതിപ്പിച്ച സംഗീതജ്ഞനായിരുന്നു പണ്ഡിറ്റ് ജസ്രാജെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പറഞ്ഞു

അദ്ദേഹത്തിന്റെ സ്വന്തമായ ആലാപന ശൈലി ഒട്ടേറെ സംഗീതജ്ഞർക്ക് പ്രചോദനമായെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

മൂന്ന് പത്മ പുരസ്കാരങ്ങളും നേടിയ അപൂർവ്വം പ്രതിഭകളിൽ ഒരാളായിരുന്നു അദ്ദേഹം

സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ എണ്ണമറ്റ പുരസ്കാരങ്ങളും പണ്ഡിറ്റ് ജസ്രാജിന് ലഭിച്ചു ദേദ കേരളത്തിൽ കോവിഡ് വ്യാപന നിരക്ക് ഉയരുന്നു

കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഇന്നലെയും തിരുവനന്തപുരത്താണ് രോഗബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതൽ

മറ്റു ജില്ലകളിലും രോഗബാധിതരിൽ ഏറിയ പങ്കും സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചവരാണ്

ദേദ കോവിഡ് വ്യാപനത്തിൽ ജനജീവിതം സ്തംഭിക്കുന്നത് ഒഴിവാക്കാൻ നിയന്ത്രണങ്ങൾ മൈക്രോതലത്തിൽ ആവണമെന്ന് മന്ത്രി ജെ

മാസ്ക് ധരിക്കാത്തവരെയും നിയന്ത്രണങ്ങൾ പാലിക്കാത്തവരെയും കർശന നടപടിക്ക് വിധേയരാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ഓണത്തിരക്കിന് പരിഹാരമായി കടകൾ രാത്രി ഒമ്പത് വരെ പ്രവർത്തിക്കുന്നത് പരിഗണിക്കാം എന്നാൽ ഒരേ സമയം അഞ്ച് പേരിൽ കൂടുതൽ കടകളിൽ ഉണ്ടാവരുതെന്ന് അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു ദേദ കോട്ടയം കലക്ടറേറ്റിലെ ജീവനക്കാരിക്ക് ആന്റിജൻ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചു

ജീവനക്കാർക്കായി നടത്തിയ പരിശോധനയിലാണ് ഒരാൾ പോസിറ്റീവായത് രുമ കൽപ്പറ്റ നഗരസഭയിലെ എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോൺ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു അതേസമയം മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണാക്കി രുമ സമ്പർക്കത്തിലൂടെ കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ കണ്ണൂർ കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇന്നു മുതൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി

ദേദ കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ മുതിർന്ന പൌരന്മാർക്കായി പ്രത്യേക കൺട്രോൾ സെൽ ആരംഭിക്കും കളമശ്ശേരി ഗവൺമെന്റ് ഐ ടി ഐ കേന്ദ്രീകരിച്ചാണ് കോൺട്രോൾ റൂമിന്റെ പ്രവർത്തനം

ടിക്കറ്റുകൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം

രുമ വന്ദേഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി എയർ ഇന്ത്യ കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്ക് നേരിട്ട് സർവ്വീസ് നടത്തും

സി സ്ലീപ്പർ ബസ് മന്ത്രി എ കെ ശശീന്ദ്രൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു കോവിഡ് കാലത്ത് യാത്രക്കാർക്ക് പ്രയോജനപ്രദമായ മികച്ച സേവനങ്ങളാണ് കോർപ്പറേഷൻ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളും പരിഗണിക്കുമെന്ന് മന്ത്രി അറിയിച്ചു

ലയങ്ങൾ ഉണ്ടായിരുന്ന ഭാഗത്ത് അടിഞ്ഞുകൂടിയ മണ്ണ് പൂർണ്ണമായി മാറ്റിയും പുഴയോരം കേന്ദ്രീകരിച്ചുമാണ് തെരച്ചിൽ

രുമ കേരളത്തിലെ ആദ്യ സോളാർ പാർക്ക് കാസർകോട് അമ്പലത്തറയിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു

ആ ചരിത്ര മുഹൂർത്തത്തെക്കുറിച്ച് ന്യൂസ് ഡസ്ക്കിൽ നിന്ന് അനുഷ ആത്മപ്രകാശ്

രാജ്യവ്യാപകമായ പ്രചാരണ യജ്ഞത്തിന്റെ ഭാഗമായിരുന്നു അന്നത്തെ കോഴിക്കോട് സന്ദർശനം തിരുച്ചിറപള്ളിയിൽ നിന്നാണ് ഖിലാഫത്ത് നേതാവ് മൌലാനാ ഷൌക്കത്തലിക്കൊപ്പം ഗാന്ധിജി കോഴിക്കോട്ടെത്തിയത്

ഒരു ദിവസത്തെ പരിപാടിക്കുശേഷം ഗാന്ധിജി കോഴിക്കോട്ടുനിന്ന് മംഗലാപുരത്തേക്ക് യാത്രയായി രുര കേരള ഹൈക്കോടതിയിൽ നാല് ജഡ്ജിമാരുടെ നിയമനത്തിന് സുപ്രീംകോടതി കൊളീജിയം അനുമതി നൽകി അഭിഭാഷകരായ മുരളി പുരുഷോത്തമൻ സിയാദ് റഹ്മാൻ കീഴ്ക്കോടതി ജഡ്ജിമാരായ കരുണാകരൻ ബാബു ഡോ കൌസർ എടപ്പകത്ത് എന്നിവരുടെ നിയമനത്തിനാണ് കൊളീജിയം അനുമതി നൽകി

എസ് സി നിയമനത്തിന് വിടാത്തതും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നൽകുന്നതുമായ എല്ലാ നിയമനങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് നാല് ശതമാനം സംവരണം ഏർപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി കെ

എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടത്തുന്ന എല്ലാ നിയമനങ്ങൾക്കും ഇത് ബാധകമാണ് രുമ എറണാകുളം മുളന്തുരുത്തി പള്ളി കൈമാറണമെന്ന ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഇന്നലെയാണ് പൊലീസ് നടപടിയിലൂടെ ജില്ലാ ഭരണകൂടം പള്ളി ഏറ്റെടുത്തത്

സ്വർണ്ണക്കടത്ത് കേസിലെ രണ്ടാം പ്രതി സ്വപ്ന സുരേഷ് ഈ പദ്ധതിയിൽ വൻ തുക കമ്മീഷൻ കൈപ്പറ്റിയെന്ന് ആരോപണം ഉയർന്നിരുന്നു